ജെ പി വിജയയാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത് കേന്ദ്രമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും

വാർത്തകൾ വിശദമായി അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെ ഭാവിശക്തിയാക്കി മാറ്റേണ്ടത് അനിവാര്യതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇപ്പോൾ പ്രസക്തമല്ലാത്ത രീതികളും സംവിധാനങ്ങളും സേന ഉപേക്ഷിക്കണമെന്ന് ഗുജറാത്തിൽ സംയുക്ത സൈനിക കമാൻഡർമാരുടെ കെവാഡിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു തദ്ദേശീയമായി രാജ്യരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതോടൊപ്പം സൈനിക നടപടി ക്രമങ്ങളും രീതികളും കാലാനുസൃതമായി പരിഷ്ക്കരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു രെട ഇന്ന് ദേശീയ ജൻ ഔഷധി ദിനം

പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന ഗുണഭോക്താക്കളുമായി സംവദിക്കുന്ന അദ്ദേഹം അവർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും സമ്മാനിക്കും കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയേറിയ മരുന്നുകൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇപ്പോൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്

ജെ പി സംസ്ഥാന പ്രസിഡണ്ട് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ വൈകിട്ട് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുര ത്തെത്തിയ അമിത് ഷാ രാവിലെ റോഡ് മാർഗം കന്യാകുമാരിയിലേക്ക് പോകും അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി കളിലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളി ലും പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും

ജെ പി കോർ കമ്മറ്റി യോഗത്തിലും അതിന് ശേഷം ശ്രീരാമകൃഷ്ണ മഠത്തിലെ സന്യാസി സംഗമത്തിലും അമിത്ഷാ സംബ ന്ധിക്കും വൈകിട്ട് അഞ്ചരയോടെയാണ് വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അമിത് ഷാ പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാക്കു വേണ്ടി കർശന സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്കാദ് ജോഷി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രമുഖ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുക്കും

രെടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികളിലെ സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും അവസാന ലാപ്പിലേക്ക്

കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകേണ്ട സീറ്റുകൾ സംബന്ധിച്ച് യു ഡി എഫിൽ ഏകദേശ ധാരണയായി

ഡി എഫിലെ സീറ്റ് വിഭജനം ചർച്ചചെയ്യാൻ തിരുവനന്ത പുരത്ത് മുന്നണി നേതാക്കൾ ഇന്ന് യോഗം ചേരും

കെ പാട്ടീൽ തിരുവനന്തപുരത്ത് അറിയിച്ചു സ്ക്രീനിങ് കമ്മറ്റി അന്തിമമായി ഡൽഹിയിൽ ചേർന്ന് സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് സൂചന കേന്ദ്രമന്ത്രി അമിത് ഷാ പങ്കെടുക്കുന്ന ബി ജെ പി കോർകമ്മറ്റി യോഗത്തോടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായേക്കും രുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ ഉൾപ്പെടെ പത്ത് സീറ്റുകൾ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ യുഡിഎഫിൽ ധാരണയായി കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കടുത്തുരുത്തി ചങ്ങനാശേരി സീറ്റുകളിൽ അവർ മൽസരിക്കും ഇതിന് പുറമെ ഇടുക്കി തൊടുപുഴ കോതമംഗലം തിരുവല്ല കുട്ടനാട് ഇരിങ്ങാലക്കുട സീറ്റുകളും പാർട്ടിക്ക് ലഭിക്കും കേരളാ കോൺഗ്രസ് മൽസരിച്ചു പോന്ന കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്ക് പകരം മറ്റൊരു സീറ്റ് നൽകാനും ധാരണയായിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകളിൽ മൽസരിക്കുമെന്ന് ഉറപ്പായി അവർ മൽസരിച്ചു പോന്ന പുതുപ്പള്ളി കോട്ടയം വൈക്കം എന്നിവയ്ക്കു പുറമേ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ സീറ്റുകളിലും ഇത്തവണ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നായിരിക്കും അതേസമയം എൽ ഡി എഫിൽ ചങ്ങനാശേരി സീറ്റ് കേരളാ കോൺഗ്രസ് എമ്മും സി പി ഐ യുംആവശ്യപ്പെട്ടതിനെ തുടർന്ന് തർക്കം നിലനിൽക്കുകയാണ്

ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പൂരിപ്പിച്ച് അവർക്ക് തന്നെ മടക്കി നൽകണം കോവിഡ് വികലാംഗ വിഭാഗങ്ങളിൽ കഴിയുന്നവർ ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം കൂടി അപേക്ഷക്കൊപ്പം നൽകേണ്ടതാണ് ടെട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ നിയമ വിരുദ്ധമായി സ്ഥാപിക്കുന്ന ബാനറുകൾ പതാകകൾ പരസ്യ ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യണമെന്ന ഉത്തരവ് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദേശം നൽകി

രെട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശ പ്രകാരം കാക്കനാട് കലക്ടറേറ്റിൽ മാധ്യമ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു പെയ്ഡ് ന്യൂസ് ഏകപക്ഷീയ വാർത്തകൾ അനുമതിയില്ലാത്ത പരസ്യങ്ങൾ പ്രക്ഷേപണം സംപ്രേഷണം എന്നിവ കണ്ടെത്താനും തുടർ നടപടി എടുക്കാനും വിപുലമായ സജ്ജീകരണങ്ങൾ സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട് ടെട കൊല്ലം ജില്ലയിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമഘട്ടത്തിലാണ് ചർച്ചകൾ തുടരുന്നു

ടെട കോവിഡ് രോഗബാധ വ്യാപനം മരണം എന്നിവ പൂജ്യത്തിലെ ത്തിക്കുന്നതിന് കൊല്ലം ജില്ലയിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ട്രിപ്പിൾ സീറോ ക്യാമ്പയിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും രാജ്യാന്തര അംഗീകാരം ലഭിച്ചു ഹെൽത്ത് അന്തർദേശീയ വെബിനാറിലാണ് ഇന്നവേറ്റിവ് പ്രാക്ടീസസ് പൊതുജന ആരോഗ്യ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ടെട പാലാരിവട്ടം മേൽപ്പാലം ഇന്ന് വൈകിട്ട് ഗതാഗതത്തിന് തുറന്ന് കൊടുക്കും പാലത്തിന്റെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭാര പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ആഘോഷ പരിപാടികൾ ഇല്ലാതെയായിരിക്കും പാലം തുറന്ന് കൊടുക്കുന്നത്

എൽ ഏഴാം സീസൺ ഒന്നാം പാദ സെമിയിൽ എ ടി കെ മോഹൻബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്

പുതുക്കിയ ടൈംടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് രുടെ തിരുവനന്തപുരത്ത് ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചും സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തി

വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നാളെ രാവിലെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടത്തും ചീഫ് സെക്രട്ടറി വി പി ജോയ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും

കുമരകം തുണ്ടത്തിൽ വിജയന്റെ മകൻ അജയനാണ് മരിച്ചത്